ഡോണൾഡ് ട്രംപും ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും പ്രതിരോധ ഊർജ മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവയ്ക്കും

അമേരിക്കൻ പ്രസ്ടിഡൻ്റ് ട്രംപ് ഇന്ത്യയുടെ വളരെ നല്ല സുഹൃത്താണെന്നുകൃപ്പധാനമന്ത്രി നരേന്ദ്രമോദി

വാർഷിക ആചരണം ഇന്ന്

മുഖമുദ്രയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ

ഹൈദരാബാദ് ഹൌസിലാണ് ലോകം ഉറ്റു നോക്കുന്ന ചർച്ചകൾ നടക്കുന്നത് രാഷ്ട്രപതിഭവൻ രാജ്ഘട്ട് സന്ദർശനം തുടങ്ങി അമേരിക്കൻ പ്രഡിഡന്റിന് ഇന്ന് ന്യൂ ഡൽഹിയിൽ തിരക്കിട്ട പരിപാടികളാണ്

രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ട്രംപിന്മൂർ പീത്നി മെലാനിയക്കും രാവിലെ ഔപചാരിക വരവേൽപ്പ് നൽകും

പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ മ്യൂപാരനിക്ഷേപം പ്രതിരോധം ഭീകരവിരുദ്ധ പ്രവർത്തനം ഊർജ്ജസുരക്ഷ ഇന്തോപസഫിക് മേഖലയിലെ സ്ഥിതിഗതി ത്രൂട്ടങ്ങി ഉഭയകക്ഷി മേഖലയിലെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുക്കു്യും നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും

ഇതുസംബന്ധിച്ച കരാറിന് ഇന്ന് ഒപ്പിടും തുടർന്ന് പ്രസിഡന്റ് ട്രംപിന് പ്രധാനമന്ത്രി ഉച്ചവിരുന്ന് നൽകും

രാഷ്ട്രപതി ഭവനിൽ വിരുന്നിൽ പങ്കെടുത്ത ശേഷം പ്രസിഡന്റ് ട്രംപ് അമേരിക്കയിലേക്ക് മടങ്ങും രണ്ടു ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് അഹമ്മദാബാദിലെത്തിയത്

അഹമ്മദാബാദിലെ മോട്ടേര സ്റ്റേഡിയത്തിൽ ഇരു നേതാക്കളും സംയുക്തമായി ഒരു ലക്ഷത്തോളം ജനങ്ങളെ അഭിസംബോധന ചെയ്തു വൈകിട്ട് ആഗ്രയിലെ താജ്മഹൽ സന്ദർശിച്ച ശേഷം ഡൽഹിയിലെത്തിയ അദ്ദേഹത്തിന് കേന്ദ്രഗവൺമെന്റ് ഊഷ്മള സ്വീകരണം നൽകി

അഹമ്മദാബാദിലെ നമസ്തേ ട്രംപ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാപാര സൈനിക രംഗങ്ങളിൽ ഇരു രാജ്യങ്ങളും അടുത്ത പങ്കാളിത്തം പുലർത്തുന്നതായും ശ്രീ മോദി പറഞ്ഞു

ഭീകരതയ്ക്കെതിരെ ഇരുരാജ്യങ്ങളും ഒന്നിച്ചു പോരാടും

വിവിധ യുദ്ധങ്ങളിൽ ജീവൻ വെടിഞ്ഞ ധീരനായകന്മാരുടെയും സുരക്ഷാ ജീവനക്കാരുടേയും സ്മരണാർഥമാണ് സ്മാരകം സ്ഥാപിച്ചത്

രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശസ്നേഹികളുടെ ഓർമ്മയ്ക്കായാണ് ഈ സ്മാരകം നിർമ്മിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

മൂന്നു വർഷ കാലാവധിയുള്ള കമ്മിഷൻ സൂപ്രധാന നിയമപ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് വിദഗ്ധ ഉപദേശങ്ങൾ നൽകും നിയമ കമ്മിഷന്റെ നിയമനം സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ അംഗീകാരമായതോടെ കമ്മിഷൻ ചെയർമാനെ നിയമിക്കുക എന്നതാണ് ഇനി ഗവൺമെന്റിന്റെ മുന്നിലുള്ളത് സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതികളിൽ നിന്നോ വിരമിച്ച ജഡ്ജിമാരാവും കമ്മിഷൻ ചെയർമാനാവുക

കഴിഞ്ഞ ആഴ്ചയാണ് പുതിയ കമ്മിഷനെ നിയമിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകിയത്

പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലെ നിലവാരം വിലയിരുത്തുന്നതിനായി ചേർന്ന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് നവഭാരതത്തിന്റെ അടിസ്ഥാനശിലയാണ് എല്ലാ സ്ഥാപനങ്ങളും പുതുതലമുറയെ മികവിലേക്ക് ഉയർത്താനും ആഗോള പട്ടികയിൽ അവരുടെ സ്ഥാനം മികവുറ്റതാക്കാനും ഇത്തരം സ്ഥാപനങ്ങൾ സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു

മരിച്ചവരിൽ ക്ടൂടുത്ൽ പേരും ചൈനക്കാരാണ്

ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ആദ്യമായി ഇന്നലെ കൊറോണ ബാധ സ്ഥിരീകരിച്ചു

ചൈനയ്ക്ക് പുറത്ത് ഏറ്റവുമധികം പേർക്ക് കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദക്ഷിണ കൊറിയയിലാണ് കൊറോണ് വൈറസ് പ്രതിരോധത്തിനായി രാജ്യമൊട്ടുക്ക് നടക്കുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ

വൈറസിന്റെ വ്യാപനം കൂടുതലുള്ള ചൈന ഹോംങ്കോങ് തായ്ലന്റ് സിംഗപ്പൂർ ജപ്പാൻ ദക്ഷിണകൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളെ കൂടാതെ വിയറ്റ്നാം നേപ്പാൾ ഇൻഡോനേഷ്യ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളേയും നിരീക്ഷണത്തിന് വിധേയമാക്കാൻ നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി അറിയിച്ചു

വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഏഴുപേരെ ഇന്നലെ ഒഴിവാക്കി

ഈ വ്യവസ്ട്യികളുമായി ചേർന്ന് സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കാൻ അദ്ദേഹം യുവാക്കളെ ക്ഷണിച്ചു ഉദ്ധംപൂർ ജില്ലയിൽ നടപ്പിലാക്കുന്ന കേന്ദ്രപദ്ധതികളുടെ പുരോഗതി ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് അദ്ദേഹം വിലയിരുത്തി

അറിവിന്റെയും വിവേകത്തിന്റെയും പാരമ്പര്യമാണ് ഇന്ത്യൻ സംസ്കാരത്തെ നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

നാളെ രാവിലെ നടക്കുന്ന ക്ഷീരസംഗമവും കേരളത്തിലെ ആനന്ദ് മാതൃക പ്രസ്ഥാനത്തിന്റെ വാർഷികാഘോഷവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരമേഖലയിലെ വിവിധ ഏജൻസികളുടെയും ആഭിമുഖൃത്തിലാണ് പരിപാടി നടത്തുന്നത്

ഐ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറഞ്ഞു നിയമത്തിനെതിരായി നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഒപ്പമുണ്ടെന്ന് വരുത്തുകയും അതേസമയം സംസ്ഥാനത്ത്ക പ്രക്ഷോഭത്തിലേർപ്പെടുന്നവർക്കെതിരേ ക്കേറ്റസ്ടുക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത് കണ്ണൂർ ഡി സി

കസ്റ്റംസ് സൂപ്രണ്ട് ബി

രണ്ടുപേരും കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥരാണ്

നീന്തലിൽ സ്വർണ്ണമടക്കം നാല് മെഡലുകളാണ് ജ്യോതിയും ആരതിയും നേടിയത് ഒഡീഷയിൽ നടക്കുന്ന മത്സരങ്ങൾ നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമൃത്സറിലെ ഗുരുനാനാക്ക് സർവകലാശാലയാണ് മുന്നിൽ